ലോക്സഭയിലേക്കുള്ള ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ

പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണസമയം വെട്ടികുറച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി

കള്ളവോട്ട് കടെ ത്തിയ കാസർകോട്ടെ മൂന്നു ബൂത്തുകളിലും കണ്ണൂരിലെ ഒരു ബൂത്തിലും ഞായാറാഴ്ച റീപോളിംഗ് നടത്താൻ തീരുമാനം

ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നടന്ന പോരാട്ടത്തിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണപ്രദേശത്തുമാണ് ഞായറാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ മൌവിൽ തെരർഞ്ഞടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു പാവപ്പെട്ടവരുടെയും കർഷക്രൂടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാ്ണെന്ന് ശ്രീ മോദി പറഞ്ഞു

ഭീകരതയ്ക്കും നക്സലുകൾക്കുമെതിരെ എൻഡിഎ ഗവൺമെന്റ് ശക്തമായ നടപടിയെടുത്തു

മുൻ എസ് പി ബിഎസ്പി ഗവൺമെന്റുകൾ പഞ്ചാസാര മില്ലുകൾ അടച്ചുപൂട്ടുകയും കാർപ്പറ്റ് വൃവസായം തകർക്കുകയും ചെയ്തു മിർസാപുരിലെ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു പശ്ചിമബംഗാളിൽ മഥുരാപൂരിൽ റാലിയിൽ സംസാരിക്കവേ സംസ്ഥാനത്തെ അക്രമങ്ങൾക്ക് കാരണം മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു നവോത്ഥാന നായകൻ ഈശ്വർചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തതും മോദി ചൂ ിക്കാട്ടി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ജിൽ റാലിയിൽ പങ്കെടുത്തു അധികാരത്തിലെത്തിയാൽ കർഷക വായ്പകൾ എഴുതിത്തള്ളുകയും നൃായ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ബിഹാറിൽ പറഞ്ഞു

നോട്ട് അസാധുവാക്കൽ സമ്പദ് വ്യവസ്ഥ തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബിജെപി പൂർണ്ണമായും പ്രജ്ഞയുടെ പ്രസ്താവനയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുവെന്ന് ന്യൂഡൽഹിയിൽ ഇന്ന് വാർത്താലേഖകരുമായി സംസാരിക്കവേ പാർട്ടി വക്താവ് ജി പ്പി എൽ നരസിംഹറാവു പറഞ്ഞു

ഗാന്ധിസത്തോടുള്ള അവഹേളനമാണ് പ്രജ്ഞസിംഗ് താക്കൂർ നടത്തിയതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി

കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവേദ്കർ മുക്താർ അബ്ബാസ് നഖ്വി വിജയ് ഗോയൽ എന്നിവരാണ് ബിജെപിക്ക് വേ ി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നീതിയുക്തവും സ്വതന്ത്രവുമായി നടത്തുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു

കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ് പശ്ചിമബംഗാളിലെ പ്രചാരണ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കറച്ചെതെന്നും അവർ കുറ്റപ്പെടുത്തി

പ്രധാനമന്ത്രിയുടെ റാലി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചെന്നും അദ്ദേഹം ചൂ ിക്കാട്ടി

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള അതിക്രമമാണെന്നും ശ്രീമതി മമതാ ബാനർജി കുറ്റപ്പെടുത്തി

നഗരഭരണവകൂപ്പ് മന്ത്രിയും കോൺഗ്രസ് എംഎൽഎ യുമായിരുന്ന സി

എ ആയിരുന്ന ഉമേഷ് ജാദവ് കോൺഗ്രസ് വിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുന ഖാർഗേയ്ക്കെതിരെ കൽബുർഗിയിൽ ബിജെപിട് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നാണ് ചിഞ്ചോളിൽ ഒഴിവ് വന്നത്

ഇരയ്ക്ക് നീതി ലഭൃമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശിക്ഷാനടപടികൾ വേഗത്തിലു ാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നു െന്നും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു ഇരയ്ക്ക് നീതി ആവശ്യപ്പെട്ട് ബിജെപിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും സംസ്ഥാനത്ത് പ്രക്ഷോഭപാതയിലാണ്

റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെയും ജനറൽ ഒബ്സർവറുടെയും റിപ്പോർട്ടുകളും മറ്റു തെളിവുകളും വിശകലനം ചെയ്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്

ഒരു സൈനികൻ വീരമൃത്യു വരിച്ചപ്പോൾ ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടു ര സൈനികരടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ട ഭീകരരിൽ ര ് പേർ പ്രദേശത്ത് നിന്നുള്ളവരും ഒരാൾ പാകിസ്ഥാനിയുമാണെന്ന് ജമ്മുകാശ്മീർ ഡിജിപി ദിൽബാഗ് സിംഗ് അറിയിച്ചു

സംഭവത്തെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗ്സ്ഥർ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗ്ര് പ്പിളിച്ചിട്ടു ് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാന ഡിജിപിക്ക് നിർദ്ദേശം നൽകിയിട്ടു ് പഞ്ചാബാരി മേ്ഖലയിൽ പോലീസ് പരിശോധന നടത്തി

അഴിമതിക്കെതിരായ നടപടി സ്വീകരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും വെബ്സൈറ്റിലൂടെ അറിയാനാകും

രാജ്യത്തെ വർദ്ധിച്ച് വരുന്ന ഊർജ്ജാവശ്യം നിറവേറ്റാൻ ആണവോർജ്ജത്തിന് കഴിയും ഹൈദ്രാബാദിൽ അറ്റോമിക് മിനറൽ ഡയറക്ടറേറ്റ് ഓഫ് എക്സ്പ്പൊറേഷൻ ആന്റ് റിസർച്ച് സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഹരിത ഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കാനും ജൈവ ഇന്ധനങ്ങൾക്ക് ബദലായും ഉപയോഗിക്കാവുന്നതാണ് ആണവോർജ്ജമെന്ന് ശ്രീ വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു

കേസ് വീ ും പരിഗണിയ്ക്കുന്ന ജൂലൈ ഒന്നിന് മുൻപ് അഭിപ്രായം അറിയിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജസ്റ്റീസ്മാരായ ഇന്ദിരാ ബാനർജിയും സഞ്ജീവ് ഖന്നയും ഉൾപ്പെടുന്ന അവധിക്കാല ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

മൈക്കൽ ് ഹെർഷ്മാൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകളിന്മേൽ കൂടുതൽ അന്വേഷണം നടത്താൻ സിബിഐ വിചാരണ കോടതിയോട് അനുവാദം ചോദിച്ചിരുന്നു